സോണുകൾ സംബന്ധിച്ച തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്ക് കൺടൈൻമെന്റ് സോണുകളിൽ അവശ്യ സേവനം മാത്രം

തുടരും മെട്രോ റെയിൽ സർവ്വീസു്കൾ ഉണ്ടാകില്ല

കോവിഡ് മാന്ദ്യം മറിക്കടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ജി ഡി

ഉം പൂൻ ചുഴലിക്കാറ്റ് ശക്തിയാർജിക്കുന്നു ഒഡീഷ തീരങ്ങളിൽ കനത്ത് ജാഗ്രത

ഇത് സംബന്ധിച്ച മാർഗ്ഗ രേഖ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കി

ആഭ്യന്തര അന്താരാഷാട്ര വിമാന സർവ്വീസുകൾ ക്കള്ളടായിരിക്കില്ല ആഭ്യന്തര മെഡിക്കൽ സർവ്വീസുകൾ എയർ ആർബ്ുലൻസുകൾ എന്നിവയ്ക്ക് ഇളവുണ്ടാകും മെട്രോ റെയിൽ സർവ്വീസുകൾ ഉണ്ടായിരിക്കില്ല

പ്രവർത്തിക്കില്ല എന്നാർജ് ഹോം ഡെലിവറി അനുവദിക്കും

സ്പോട്സ് കോംപ്ലക്സുകളും സ്റ്റേഡിയങ്ങളും തുറക്കാമെങ്കിലും കാഴ്ചക്കാരെ അനുവദിക്കില്ല സാമൂഹിക രാഷ്ട്രീയ കായിക വിനോദ സാമുദായിക പരിപാടികളും മറ്റ് കൂട്ടം ചേരലുകളും അനുവദനീയമല്ല ആരാധനാലയങ്ങളിൽ പ്രവേശനം പാടില്ലെന്നും മതപരമായ കൂട്ടം ചേരലുകൾ പാടില്ലെന്നും മാർഗ്ഗ നിർദ്ദേശം വ്യക്തമാക്കുന്നു

എന്നാൽ പുറപ്പെടുന്ന സംസ്ഥാനത്തിന്റെയും എത്തിച്ചേരുന്ന സംസ്ഥാനത്തിന്റെയും അനുമതി ആവശ്യമാണ്

ചുമപ്പ് ഓറഞ്ച് പച്ച സോണുകൾ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ സർക്കാരുകൾക്ക് തീരുമാനിക്കാം

കള്ളിട്ടൻമെന്റ് സോണുകളിൽ അത്യാവശൃ കാര്യങ്ങൾ മാത്രമെ ്യൂ അനുവദിക്കുകയുള്ളുവെന്നും പുറത്തേയ്ക്കും അകത്തേയ്ക്കുമുള്ള് യാത്രകൾക്ക് കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും മാർഗ്ഗരേഖ വൃക്തമാക്കുന്നു രാത്രി യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഉണ്ടാകും രാത്രി എഴ് മുതൽ രാവില്ലെ ഏഴ് വരെ അത്യാവശ്യ സർവ്വീസുകൾക്ക് മാത്രമെ യ്ാത്രാനുമതി നൽകുകയുള്ളു

എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകർ ശുചീകരണ തൊഴിലാളിൾ എന്നിവരുടെ അന്തർസംസ്ഥാന യാത്ര തടയരുതെന്നും ചരക്ക് വാഹനങ്ങളുടെ അന്തർസംസ്ഥാന യാത്ര അനുവദിക്കണമെന്നും മാർഗ്ഗ നിർദ്ദേശം വൃക്തമാക്കുന്നു

ഇത് പിന്നീട് രണ്ടുതവണ കൂടി ദീർഘിപ്പിക്കുകയായിരുന്നു

ആത്മ നിർഭർ ഭാരത് പൂർക്ക്ജിന്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ പ്രഖ്യാപനങ്ങളിൽ ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര തീരുമാന്ം പ്ല്യക്തമാക്കിയത് തന്ത്രപ്രധാന മേഖലകളിൽ ്സ്ടകാര്യ പങ്കാളിത്തം അനുവദിക്കുമെന്നും പൊതുമേഖലാ പൂർണ്ണമായും സ്വകാര്യമേഖലയ്ക്ക് തുറന്നു കൊടുക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു

മേഖലകളുടെ ത്വരിത വികസനം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്

സംരംഭകത്വം വർദ്ധിപ്പിക്കാനും പൊതുമേഖലയെ സഹായിക്കാനും ഗ്രാമീണ സമ്പദ്വൃവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാന്നും പുതിയ സാമ്പത്തിക പാക്കേജ് പ്രയോജനപ്പെടുമെന്നും പ്രധാന്ത്മിന്തി ടിറ്ററിൽ കുറിച്ചു

അമിത്ഷാ അഭിപ്രായപ്പെട്ടു

രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലിരിക്കുന്ന ആരുടേയും പരിശോധനാഫലം നെഗറ്റീവ് ആയില്ല

എ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

ദുബൈ അബുദാബി ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ എത്തിയത്

ഇന്നു മുതൽ ഒഡീഷ ആന്ധപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ കമ്മിറ്റി യോഗം ചേർന്നു